നയിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കേന്ദ്ര അനുമതി

ലോകത്ത് ഏറ്റവും ഉയർന്ന് കോവിഡ് മുക്തി നിരക്ക് ഇന്ത്യയിൽ

ട്രെയിനുകൾ ഓടിക്കും

അന്താരാഷ്ട്ര നാണയ നിധി

ബാലാസാഹിബ് വിഖേ പാട്ടീലിന്റെ ആത്മകഥാ പ്രകാശന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം അന്നദാതാക്കളിൽ നിന്ന് സംരംഭകർ എന്ന നിലയിലേയ്ക്ക് കർഷകരെ ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രാദേശിക സമ്പദ്വൃവസ്ഥ പ്രാദേശിക സംരംഭം എന്നീ മാതൃകകൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കും മഹാരാഷ്ട്രയിലെ പഞ്ചസാര വ്യവസായവും ഗുജറാത്തിലെ ക്ഷീര മേഖലയിലെ ധവള വിപ്ലവവും പഞ്ചാബിലും ഹരിയാനയിലും ഗോതമ്പ് ഉല്പാദനത്തിലുണ്ടായ വർധനവും ഉദാഹരണമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ടി കൌൺസിൽ യോഗത്തിൽ പ്രശ്നപരിഹാരത്തിന് രണ്ട് മാർഗ്ഗങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു

എട്ട് സംസ്ഥാനങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല

കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്നുണ്ട് തുടർച്ചയായ അഞ്ചാം ദിവസവും രാജ്യത്തൊട്ടാകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഒൻപത് ലക്ഷത്തിൽ താഴെയാണെന്ന് കോവിഡ് അവലോകന യോഗത്തിൽ കേന്ദ്ര ആരോഗൃമന്ത്രി പറഞ്ഞു കോവിഡ് പരിശോധനാശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്

ഹർഷ വർദ്ധൻ വ്യക്തമാക്കി

കേരളം മഹാരാഷ്ട്ര കർണ്ണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവുമധികം രോഗബാധിതർ

തിരുവനന്തപുരത്ത് രോഗവ്യാപനം കുറയുന്നതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വൃക്തമാക്കി

സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ അടുത്തിടെയുണ്ടായ വർദ്ധനവ് ഫലപ്രദമായി നിയന്ത്രിച്ച ജില്ലാ ഭരണകൂടത്തെ ചീഫ് സെക്രട്ടറി അഭിനന്ദിച്ചു

കോവിഡിന്റെ ക്ലസ്റ്ററുകൾ തിരിച്ചറിയാനും പരിശോധന ഫലപ്രദമായി വ്യാപിപ്പിക്കാനും ആരോഗ്യസേതു സഹായിക്കുന്നതായി ലോകാരോഗൃ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് പറഞ്ഞു രാജ്യങ്ങൾ ശരിയായ മാർഗ്ഗങ്ങൾ അവലംബിച്ചാൽ മഹാമാരിയെ പെട്ടെന്ന് മറികടക്കാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

സി ലോക്കൽ ട്രെയിനുകൾ ഓടിക്കുമെന്ന് പശ്ചിമ റെയിൽവേ അറിയിച്ചു

എറണാകുളം വൈക്കം ആലപ്പുഴ കോട്ടയം മേഖലകളിലാണ് ജലഗതാഗത വകുപ്പിന്റെ എ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ബോട്ട് സർവീസ് പുനരാരംഭിക്കുക

മൂന്നാംഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം ഏഴിന് നടക്കും

എം എഫ് ലോക സാമ്പത്തിക വീക്ഷണ റിപ്പോർട്ടിൽ പറയുന്നു

ധന സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ മുമ്പില്ലാത്ത വിധം പ്രതികരിച്ചതാണ് പല സമ്പദ്വൃവസ്ഥകളെയും തകർച്ചയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തിയതെന്ന് ഐ

ഈ ദുരന്തത്തിൽ നിന്നുള്ള കര കയറൽ ദീർഘവും അനിശ്ചിതവുമാണ് കോവിഡിന് മുമ്പുള്ള ഘട്ടത്തിലേക്കാൾ മോശം നിലയിലാണ് തൊഴിൽ മേഖല താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികളും യുവജനങ്ങളും സ്ത്രീകളുമാണ് ഏറ്റവും ദുരിതത്തിലായതെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമല്ലെന്ന് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു

ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും കനത്ത മഴയാണ് പലയിടത്തും പെയ്തത് ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു തിരുവനന്തപുരം ജില്ലയിൽ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പേപ്പാറ ഡാമിന്റെ രണ്ടും മൂന്നും ഷട്ടറുകൾ രാവിലെ ഒൻപത് മണിക്ക് അഞ്ച് സെന്റീമീറ്റർ വീതം ഉയർത്തും

പരിസരവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു

കാസ്റ്റലോറിസോ ദ്വീപിൽ ഊർജ പര്യവേഷണ്ത്തിനായി സർവേ നടത്താൻ തുർക്കി കപ്പൽ അയച്ചതാണ് ഗ്രീക്ക് ദ്വീപുകളും സൈപ്രസും പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ ഇടയാക്കിയത് ഗ്രീക്ക് ദ്വീപിന് ചുറ്റുമുള്ള തർക്ക പ്രദേശത്തേക്ക് കപ്പൽ എത്തുന്നത് യൂറോപ്യൻ യൂണിയനും തുർക്കിയും തമ്മിലുള്ള ബന്ധം മോശമാക്കുമെന്ന് ജർമൻ വിദേശമന്ത്രി ഹെയ്കോ മാസ് പറഞ്ഞു